ലോക്സഭാ സ്പീക്കർ വിളിച്ച കക്ഷിനേതാക്കളുടെ സർവ്വകക്ഷി യോഗം ഇന്ന് നടക്കും

തുറക്കും

പുരസ്കാരം കേരളത്തിന്

കണ്ണൂരിൽ തുടക്കമായി

രണ്ടാം എൻഡിഎ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷമുള്ള രണ്ടാമത്തെ പാർലമെന്റ് സമ്മേളനമാണിത്

സഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് പിന്തുണ തേടി സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ്നടക്കും രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം നാളെയാണ് പുതിയ ആഭ്യന്തര നിർമ്മാണ കമ്പനികൾക്ക് കോർപറേറ്റ് നികുതിയിൽ കുറച്ച് പുറത്തിറക്കിയ ഓർഡിനൻസിന് പകരമുള്ള ബിൽ ഈ സമ്മേളനത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും

പാർലമെന്റ് സമ്മേളന്ത്തിന്റെ കാര്യ പരിപാടികൾ തീരുമാനിക്കുന്നതിനായി കഴിഞ്ഞു ആഴ്ച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ പാർല്ലമെന്റ്റികാര്യ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണ്ണി

ആദിവാസി വിഭാഗത്തിൽപെട്ടവരുടെ സംസ്കാരം കല വാണിജ്യം പാചകവൃത്തി എന്നിവ ഉൾപ്പെടെയുള്ളവ മേളയിൽ പ്രദർശിപ്പിക്കും പരമ്പരാഗത ആദിവാസി വസ്ത്രരീതികളും ഇവിടെ കാണാനാകും

യംഗ് ഇന്ത്യാ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കേസാണ് ആദായ നികുതി വകുപ്പ് ട്രൈബ്യൂണൽ തള്ളിയത്

സംഘടന ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെന്നും വാണിജ്യ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും കോടതി വിലയിരുത്തി റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടത്തിയ രാഹുൽഗാന്ധിയ്ക്കെതിരെ ബിജെപി ഇന്ന് ദേശീയ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു രാഹുൽഗാന്ധി ഇക്കാരൃത്തിൽ മാപ്പ് പറയണമെന്നും വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബിജെപി ജനറൽ സെക്രട്ടറി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്

സി പി അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുശേഷം മാത്രമേ അന്തിമ തീരുമാനമാകൂ എന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു അതിനിടെ എൻ സി പി സേന കോൺഗ്രസ് സഖ്യം രൂപീകരിക്കുന്ന ഗവൺമെന്റ് അഞ്ചു വർഷം പൂർത്തിയാക്കുമെന്ന് ശ്രീ ശരത്പവാർ പറഞ്ഞു

ഈ മാസം അഞ്ചിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻസ് ഫോർ ആംനെസ്റ്റി ഇന്റർനാഷണൽ ട്രസ്റ്റ് ആംനെസ്റ്റി ഇന്റർനാണഷൽ ഫൌണ്ടേഷൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തത്

ഡൽഹി എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോട് സുപ്രീംകോടതി വിശദ്വീകരണം തേടി

ഡൽഹിയിൽ ഏർപ്പെടുത്തിയ വാഹന നിയന്ത്രണങ്ങളിൽ നിന്ന് ഇരു ചക്രുവാഹൃനങ്ങളേയും മുച്ചക്രവാഹനങ്ങളേയും ഒഴിവാക്കിയതും സുപ്രീംകോടത്തി ചോദ്യം ചെയ്തു

ആകാശവാണിയുടെ പുതുസാങ്കേതികവിദ്യ ആഡിറ്റോറിയം ഉദ്ഘാടനംചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസാർഭാരതിയുടെ ശേഖരത്തിലെ ഗുരുബനിയുടെയും ഷബദ് കീർത്തനത്തിന്റേയും ഡിജിറ്റൽ ആവിഷ്ക്കാരവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി വി

ശബരിമലയിലെ പുതിയ മേൽശാന്തി യായി എ

സുധീർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തിയായി എം

പരമേശ്വരൻ നമ്പൂതിരിയെയും അവരോധിക്കുന്ന ചടങ്ങും നടക്കും

അതിനിടെ ആക്ടിവിസ്റ്റുകളെ ഗവൺമെന്റ് സംരക്ഷണം നൽകി ശബരിമലയിൽ കൊണ്ടുപോകില്ലെന്ന് ദേവസ്വം മന്ത്രി ഇന്നലെ വൃക്തമാക്കിയിരുന്നു മണ്ഡല മഹോത്സവത്തിനായി ശബരിമലയും പരിസര പ്രദേശങ്ങളും പൂർണ സജ്ജമായതായി ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും അറിയിച്ചു

തൃശൂർ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യയുടെ കബറിട ദേവാലയത്തിലാണ് ചടങ്ങുകൾ നൂറോളം ബിഷപ്പുമാർ പങ്കെടുക്കുന്ന ദിവ്യബലിയിൽ സീറോ മലബാർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമികത്വം വഹിക്കും

ഭൂിന്ന്ശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനും ശാക്തീക്രണത്തിനും മുഖ്യധാരവത്ക്കണത്തി നുമായി സംസ്ഥാനം നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളാണ് കേരളത്തെ അവാർഡിന് അർഹമാക്കിയത് അടുത്ത മാസം മൂന്നിന് ലോക ഭിന്നശേഷി ദിനത്തിൽ ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കും

മങ്ങാട്ടുപറമ്പിലെ കണ്ണൂർ സർവ്വകലാശാല സ്റ്റേഡിയത്തിലാണ് കായികോത്സവം നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ഇതിനായി പ്രത്യേക അനുമതിയ്ക്കായി കാത്തു നിൽക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്

തിരുവനന്തപുരത്ത് നടന്ന ലോകായുക്ത ദിനാഘോഷ ചടങ്ങിൽ മുഖ്യപ്രഭ്ടാഷണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം ലോകായുക്ത തികഞ്ഞ ജീഹ്രതയോടെ പരിശോധി ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

തുറമുഖ മേഖല യുവാക്കൾക്ക് അനന്ത തൊഴിൽ സാധ്യതകളാണ് നൽകുന്നതെന്ന് മന്ത്രി കടന്നപള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു

ഹയർസെക്കൻഡറി വിഭാഗത്തിൽ ചങ്ങനാശേരി ഉപജില്ലയും ഹൈസ്കൂൾ യുപി വിഭാഗങ്ങളിൽ കുറവിലങ്ങാട് ഉപജില്ലയുമാണ് ജേതാക്കൾ